എല്ലാ വിഭജന ശ്രമങ്ങളെയും സാഹോദര്യത്തിലൂടെ പരാജയപ്പെടുത്താമെന്നും മൻ കി ബാതിൽ പ്രധാനമന്ത്രി

ത ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി അക്രമം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിലൂടെയല്ല മറിച്ച് കൂടുതൽ സമാധാനം കണ്ടെത്തുന്നതിലൂടെയാണ് പ്രശ്ന പരിഹാരം സാധ്യമാവുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാതിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവെയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി അക്രമത്തിലൂടെയും ആയുധങ്ങളിലൂടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇപ്പോഴും ശ്രമിക്കുന്നവർ മുഖ്യധാരയിലേക്ക് തിരിച്ചുവരണമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ആ അവസരത്തിൽ ഗഗൻയാൻ മിഷനോടൊപ്പം ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്ത് എത്തിക്കുക എന്ന സ്വപ്നം സാക്ഷാൽക്കരിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രുഭ ചൈനയിൽ വ്യാപിക്കുന്ന കൊറോണ വൈറസ് ഇതുവരെ ഒരു ഇന്ത്യക്കാരനെയും ബാധിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വുഹാനിലും ഹ്യുബെ പ്രവിശ്യയിലെ എല്ലായിടത്തും സർവ്വകലാശാല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരുമായും എംബസി അടുത്തബന്ധം പുലർത്തുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ട്വിറ്ററിൽ അറിയിച്ചു ഇവർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

അതേസമയം വൂഹാനിൽ കൊറോണ വൈറസ് വ്യാപനം ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും പുതിയ വൈറസിന്റെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന നിർണ്ണായക ഘട്ടത്തിലാണെന്നും ചൈനയുടെ ദേശീയ ആരോഗ്യ കമ്മീഷൻ ബീജിംഗിൽ അറിയിച്ചു രുമ നേപ്പാളിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതോടെ ഇന്ത്യ അതിർത്തി ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കി ഉത്തരാഖണ്ഡിലെ അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ ആരോഗ്യ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്

ആരിലും രോഗലക്ഷണങ്ങൾ ഇല്ല

രുക നേപ്പാളിൽ വിനോദയാത്രയ്ക്ക് പോയി റിസോർട്ടിൽ മരിച്ച എട്ട് മലയാളികളുടെ കുടുംബങ്ങൾക്ക് നേപ്പാൾ ഗവൺമെന്റിൽനിന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ അടിയന്തരമായ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ്

ഇവരുടെ മരണം കുടുംബാംഗങ്ങൾക്ക് കനത്ത ആഘാതമാണ് വരുത്തിവെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കത്തിൽ പറഞ്ഞു ദ്രദ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും കിർത്താഡ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗദ്ദിക നാടൻ കലാമേളയും ഉൽപന്ന പ്രദർശന വിപണനമേളയും ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ദരദ ഐ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട് നടന്ന ഹോം മത്സരത്തിൽ ഗോകുലം കേരള ഏകപക്ഷീയ ഒരു ഗോളിന് ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തി

രുദ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് അത് ലറ്റികോ ഡി കൊൽക്കത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

ദ്ദേ അമേരിക്കൻ ബാസ്ക്കറ്റ്ബോൾ താരം കോബി ബ്രയന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു കാലിഫോർണിയയിലെ കലബാസസിന് സമീപത്ത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഹെലികോപ്റ്റർ തകർന്ന് വീഴുകയായിരുന്നു

പൈലറ്റ് അടക്കം ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഒൻപതുപേരും മരിച്ചതായാണ് റിപ്പോർട്ട് രുര കലാ കായിക മേഖലകളെ ഉൾക്കൊള്ളിച്ച് ആകർഷകമായ രീതിയിൽ മലബാർ മഹോത്സവം ഏപ്രിലിൽ സംഘടിപ്പിക്കാൻ മന്ത്രി ടി

രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ചേർന്ന മലബാർ മഹോത്സവ ആലോചന യോഗം തീരുമാനിച്ചു തനത് പരിപാടികൾക്ക് പ്രാധാന്യം നൽകിയായിരിക്കും മഹോത്സവം സംഘടിപ്പിക്കുക ദേദ ഭക്ഷ്യ പൊതു വിതരണ വകുപ്പിന്റെ വിശപ്പുരഹിത സുഭിക്ഷാ പദ്ധതി കേരളം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പി

അശരണർക്ക് സൌജന്യമായും മറ്റുള്ളവർക്ക് സൌജന്യ നിരക്കിലും ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് ദേദ സുഭിക്ഷാപദ്ധതിക്ക് ഇന്ന് കോട്ടയം ജില്ലയിൽ തുടക്കമാകും

കോട്ടയം നഗരസഭയുടെ നാഗമ്പടം വനിതാ വിശ്രമ കേന്ദ്രത്തിലാണ് ഭക്ഷ്യ വിതരണ കേന്ദ്രം പ്രവർത്തിക്കുക രുദ ആലപ്പുഴ ബൈപ്പാസിന്റെ നിർമ്മാണം ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി ജി

റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനായി ഇന്നുമുതൽ വ്യാഴാഴ്ച വരെ ട്രെയിൻ ഗതാഗതം നിയന്ത്രിക്കുമെന്നും മന്ത്രി അറിയിച്ചു ദിവസം രണ്ട് മണിക്കൂർ വീതം ഗതാഗതം നിയന്ത്രിക്കാനാണ് റെയിൽവെ അനുമതി നൽകിയിരിക്കുന്നതെന്ന് സുധാകരൻ വ്യക്തമാക്കി രുമ തൃശൂർ ജില്ലയിലെ റവന്യൂ ഓഫീസുകളിലെത്തുന്ന ബധിര മൂക വിഭാഗങ്ങൾക്കായി ആംഗ്യഭാഷയിൽ ആശയ വിനിമയം നടത്താൻ പരിശീലനം സിദ്ധിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇനി മുതൽ ഉണ്ടാവും ഈ സൌകര്യം ഏർപ്പെടുത്തുന്ന ആദ്യ ജില്ലയാണ് തൃശൂർ ഇതിനായി റവന്യൂ ജീവനക്കാരെ പരിശീലിപ്പിക്കുന്ന ക്യാമ്പിന് തുടക്കമായി ജില്ലാ കളക്ടർ എസ് ഷാനവാസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദഗ്ധ പരിശീലനത്തിന് ശേഷം ജീവനക്കാരെ ഗവൺമെന്റ് ഓഫീസുകളിലെ അന്വേഷണ വിഭാഗത്തിൽ നിയോഗിക്കും രുക ആലപ്പുഴ ജില്ലയിൽ ഹൌസ് ബോട്ടുകളുടെ പ്രവർത്തന രീതി കൃത്യമാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും നടപടി ആരംഭിച്ചു

ഹൌസ്ബോട്ടിൽ ബോട്ടുകളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ ഉപദേശക സമിതി പ്രവർത്തനം ആരംഭിച്ചു

ചതുരംഗപ്പാറ നിവാസികളായ രണ്ടുപേർ വ്യാജ പട്ടയമുണ്ടാക്കി കെ വി

ഫാംസ് എന്ന കമ്പനിക്ക് ഭൂമി മറിച്ച് വിൽക്കുകയായിരുന്നു രുമ പ്രശസ്തമായ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ ഇന്ന് സമാപിക്കും

രുദ വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സധൈര്യം മുന്നോട്ട് പൊതു ഇടം എന്റേതും പരിപാടിയുടെ ഭാഗമായി ഐ സി ഡി എസും മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നര മുതലായിരുന്നു പരിപാടി

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന വിജയൻ മെഴുകുതിരി കത്തിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദരദ കണ്ണൂർ ധർമ്മടത്ത് മാസങ്ങളായി കടലിൽ കുടുങ്ങിയ ചരക്കു കപ്പൽ നീക്കാനെത്തിയ ടഗ്ഗിന് തീപിടിച്ചു

ഇന്നലെ രാത്രിയാണ് സംഭവം ദരദ കവരത്തി ദ്വീപിൽ പുതിയ മൂന്നുനില റവന്യൂ ഭവൻ സമുച്ചയം എൽ

ജി ഗോഡൌൺ എന്നിവ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ദിനേശൻ ഷർമ്മ ഉദ്ഘാടനം ചെയ്തു

അവധി ദിവസങ്ങളിലും രാത്രികാലത്തും സ്ക്വാഡുകൾ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു